നരേന്ദ്രമോദി ഇന്ന് അധികാരമേൽക്കും വിവിധ രാജ്യത്തലവന്മാരും നയതന്ത്ര പ്രതിനിധികളും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിന് സാക്ഷൃം വഹിക്കും

ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം

മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും

നരേന്ദ്രമോദി ഇന്ന് അധികാരമേൽക്കും കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

അഞ്ചുവർഷത്തെ ഭരണത്തിനു ശേഷ് പ്ലീണ്ടും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ബിക്ജ്

ലോകത്തെ ഏറ്റവൂം പ്ലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒട്ടേറെ രാഷ്ട്രത്തലവന്മാർ നയ്ക്ത്രന്ത് പ്രതിനിധികൾ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥ പ്രമുഖർ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ സാക്ഷികളാകും അയൽപക്കം ആദ്യമെന്ന ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായി ബിംസ്റ്റെക്ക് രാജ്യങ്ങളുടെ തലവന്മാരേയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ശ്രീലങ്ക കിർഗിസ് റിപ്പബ്ധിക് മ്യാൻമർ എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും മൌറീഷ്യസ് നേപ്പാൾ ഭൂട്ടാൻ പ്രധാനമന്ത്രിമാരും തായ്ലന്റിന്റെ പ്രത്യേക പ്രതിനിധിയും ചടങ്ങിൽ സംബന്ധിക്കും

നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിലേയ്ക്ക് ക്ഷണിച്ചിരുന്നത് കൂടാതെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി യു പി എ അധ്യക്ഷ സോണിയഗാന്ധി തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരാകും ഇന്ന് വൈകുന്നേരം നാല് മണി മുതൽ ഒൻപത് മണി വരെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട റോഡുകൾ അടച്ചിടുമെന്നും അതിനാൽ ഇതുവഴി വാഹനങ്ങളിലൂടെയും കാൽനടയായും ഉള്ള യാത്ര ഒഴിവാക്കണമെന്നും ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്

നരേന്ദ്രമോദി ഗവൺമെന്റിൽ അദ്ദേഹം അംഗമാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ബി ജെ പി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ന് പുലർച്ചെ ശ്രീ കുമ്മനം ഡൽഹിയിലേയ്ക്ക് പുറപ്പെട്ടത്

റെയിൻബോയിലും പ്രേക്ഷകർക്ക് തൽസമയം സത്യപ്രതിജ്ഞാ ചടങ്ങ് കേൾക്കാനാകും

ജഗൻമോഹൻ റെഡ്ഡി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും വിജയവാഢ്യൂട്ടിലെ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന് പ്ലൂടങ്ങിൽ ഗവർണർ ഇ

തെലങ്കാന മുഖ്യമന്ത്രി കെ ചുന്ദ്ര്ശേഖർ റാവു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജനസേന്റ് ട്ടാർട്ടി നേതാവ് പവൻ കല്യാൺ തുടങ്ങിയവരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സന്നിഹിതരാകും

ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ പുതിയ ഗവൺമെന്റിൽ ഉൾപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ശ്രീ

ചികിത്സയ്ക്കായി തനിക്ക് സമയം ആവശ്യമാണെന്നും അതിനാൽ പുതിയ ഗവൺമെന്റിൽ ഒരു ഉത്തരവാദിത്തവും ഏറ്റെടുക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും ശ്രീ ജയ്റ്റ്ലി കത്തിൽ വിശദമാക്കിയിരുന്നു

എ മുനിറുൾ ഇസ്ലാം ബി ജെ

തൃണമൂൽ നേതാക്കളായ ഗദാധാർ ഹസ്റ മൊഹമ്മദ് ആസിഫ് ഇക്ബാൽ നിമായി ദാസ് എന്നിവരും ബി ജെ

ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയ് വാർഗിയയുടെ സാന്നിധ്യത്തിലാണ് ഇവർ ബി ജെ

മമത ബാനർജിയുടെ നിലപാടുകളോട് വിയ്ക്കോജിപ്പുള്ളതിനാലാണ് പാർട്ടി വിട്ടതെന്ന് ഇവർ പറഞ്ഞു

എ മാരും അമ്പതോളം കൃഷ്ണ് സിലർമാരും ബി ജെ പിയിൽ ചേർന്നിരുന്നു

ഡി

ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തെ കുറിച്ച് യോഗത്തിൽ വിശകലനം ചെയ്തുവെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡോ

കർണാടകയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് കെ

വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സിദ്ധരാമയ്യ തുടങ്ങിയ നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു

പ്രമുഖ കോൺഗ്രസ് നേതാവ് ഷീലാ ദീക്ഷിത് ഇന്നലെ തുഗ്ലക് ലൈനിലുള്ള വസതിയിലെത്തി രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി രാജി തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം അറിയിക്കാനായിരുന്നു കൂടിക്കാഴ്ച മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാജി തീരുമാനത്തിൽ നിന്ന് പിൻമാറണമെന്ന് രാഹുൽഗാന്ധിയെ നിർബന്ധിക്കുന്നുണ്ട്

നീരവ് മോദീയെ ഇന്ത്യയ്ക്ക് കൈമാറുന്നത് സംബന്ധിച്ച വിചാരണയിൽ തീരുമാനം കൈക്കൊള്ളാൻ കൂടുതൽ സമയം എടുക്കുമെന്നാണ് കരുതുന്നത് ഈ വർഷം മാർച്ചിൽ സെൻട്രൽ ലണ്ടനിലെ മെട്രോ ബാങ്ക് ശാഖയിൽ അക്കൌണ്ട് തുടങ്ങാൻ ശ്രമിക്കവെ അറസ്റ്റിലായ നീരവ് മോദിയെ സൌത്ത് വെസ്റ്റ് ലണ്ടനിലെ വാൻഡ്സ് വർത്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്

കള്ളപ്പണം ഉപയോഗിച്ച് വിദേശ രാജ്യത്ത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വസ്തുവകകൾ വാങ്ങി എന്ന കേസിലെ പ്രതിയാണ് റോബർട്ട് വാദ്ര ചികിത്സയ്ക്കായി ഇംഗ്ലണ്ടും മറ്റ് രണ്ട് രാജ്യങ്ങളും സന്ദർശിക്കാൻ അനുവദിക്കണമെന്ന് വാദ്ര കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ വാദത്തിൽ കഴമ്പില്ലെന്നും കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേയ്ക്ക് പോകാനുള്ള വാദ്രയുടെ തന്ത്രമാണിതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് കോടതിയിൽ വാദിച്ചു ഈ അവസരത്തിൽ വിദേശരാജ്യത്തേയ്ക്ക് പോകാൻ അന്നുമൃതിനൽകിയാൽ വാദ്ര ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെട്ടിന്നും ്എൻഫോഴ്സ്മെന്റ ഡയറക്ട്രേറ്റിന്റെ വാദത്തിൽ പ്യയുന്നു

അതേസമയം കേസുമായി ബന്ധപ്പെട്ട് പപ്പുജെയ്സ്വാൾ എന്നയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു

മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരത്തെ രണ്ട്ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു

കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നേരത്തെ തന്നെ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി നൽകിയിരുന്നു

വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയിട്ടു്ള്ളവരെ ആദരിക്കാനാണ് രാജ്യം പത്മപുരസ്കാരങ്ങൾ നൽകുന്നത്

കാസിരംഗ നാഷണൽ പാർക്ക് അധികൃതരാണ് പോലീസിന്റെയും വന്യജീവി കുറ്റകൃത്യ നിയന്ത്രണ ബ്യൂറോയുടെയും സഹായത്തോടെ ഇന്നലെ വൈകിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തത് ഒരു തോക്കും നാല് റൌണ്ട് തിരകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്

ലോകം കാത്തിരിക്കുന്ന പോരാട്ടത്തിന് മ്ണീക്കൂറുകൾ മാത്രം

ജൂൺ ഒന്നിന് നടക്കുന്ന മൽസരത്തിൽ ആസ്ട്രേലിയ അഫ്ഗാനിസ്ഥാനെ നേരിടും

ആദ്യ നാല് സ്ഥാനങ്ങളിലെത്തുന്നവർ സെമിഫൈനൽ ബർത്തിൽ ഇടം നേടും

പാരീസിൽ നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഉക്രേനിയൻ സഖ്യത്തെയാണ് ഇവർ നേരിടുക

നീർളെയായിരിക്കും ഇവരുടെ മത്സരങ്ങൾ നടക്കുക